ഹരിയാനാ മുഖ്യമന്ത്രിയായി മനോഹർലാൽ ഘട്ടറും ഉപമുഖ്യമന്ത്രിയായി ദുഷ്യന്ത് ചൌട്ടാലയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരണ ചർച്ചകൾ തുടരുന്നു

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് പ്രക്ഷേപണം ചെയ്യും

കൃാർ ചുഴലിക്കാറ്റ് കൂടുതൽ തീവ്രമാകുന്നു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത

ജെ

ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള തങ്ങളുടെ അവകാശവാദത്തെ ഗവർണർ സ്വീകരിച്ചതായി മനോഹർ ലാൽ ഖട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു

ജെ

കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും ബി ജെ

സംസ്ഥാനത്ത് സ്ട്രൂസ്ഥിരമായ ഗവൺമെന്റ് രൂപീകരിക്കാൻ ബി ജെ

ക്ക് കഴിയുമെന്ന് യോഗത്തിനുശേഷം രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു ജന്നായക് ജനതാ പാർട്ടി ഉൾപ്പെടുന്ന സഖ്യ ഗവൺമെന്റിനാണ് ഖട്ടർ ് നേതൃത്വം നൽകുന്നത്

ഹരിയാന ലോഘിത് പാർട്ടിയിലെ ഏക എം

എ ഗോപാൽ ഖണ്ഡയും ബിജെപി ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്

ജെ

വട്ടിയൂർക്കാവിൽ വിജയിച്ച വി കെ പ്രശാന്ത് കോന്നിയിലെ കെ യു ജനീഷ്കുമാർ അരൂരിലെ ഷാനിമോൾ ഉസ്മാൻ എറണാകുളത്തെ ടി ജെ വിനോദ് മഞ്ചേശ്വരത്ത് ജയിച്ച എം സി ഖമറുദീൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്

നിയമ നിർമാണത്തിനുമാത്രമാണ് സമ്മേളനം ചേരുന്നത്

ജെ

ക്കേ സാധിക്കൂവെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഠ്നാവിസ് മുബൈയിൽ ദീപാവലിയോടനുബന്ധിച്ചുള്ള ഒത്തുചേരലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ ദീപാവലിക്ക് ശേഷം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയേയും ധനമന്ത്രിയേയും സന്ദർശിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

വ്യവസായ സൌഹൃദ രാജൃങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ നില മെച്ചപ്പെട്ടതിനെയും അദ്ദേഹം അഭിനന്ദിച്ചു

ശ്രീനഗറിലെ കരൺനഗർ മേലയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ആക്രമണം സിആർപിഎഫ് ജവാൻമാർ ചെക്ക് പോയിന്റിൽ വാഹനങ്ങൾ പരിശോധിക്കുമ്പോഴായിരുന്നു തീവ്രവാദികൾ ഗ്രനേഡ് എറിഞ്ഞത്

രാജ്യം അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വൃവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാകുന്ന വികസന ആവശ്യങ്ങൾക്ക് ഉരുക്കിന്റെ ലഭ്യത നിർണ്ണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു

മാന്ദ്യത്തിലൂടെ കടന്നുപോവുകയാക്ണെന്ന് ശ്രീ പ്രധാൻ കൂട്ടിച്ചേർത്തു

സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ ്നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് അനധികൃത കുടിയേറ്റക്കാർ പിടിയിലായത് വിസയോ മറ്റ് രേഖകളോ കൈവശമില്ലാത്ത ഇവരെ തിരിച്ചയക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു

യന്ത്രത്തകരാറിനെ തുടർന്ന് കടലിൽ കൂടുങ്ങിയ ബോട്ടിൽ കനത്ത മഴയെ തുടർന്നാണ് വെള്ളം കയറിയത്

തെഗിൽ എത്തിച്ച ഇവർ സുരക്ഷിതരായി തീരത്തേക്ക് മടങ്ങുകയാണെന്ന് നാവികസേന അറിയിച്ചു

ദീപാവലിയോട് അനുബന്ധിച്ച് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ച ദിവസമാണ് ദീപാവലിയെന്നാണ് വിശ്വാസം രാവണവധത്തിന് ശേഷം അയോധ്യയിൽ മടങ്ങിയെത്തിയ രാമനെയും സീതയെയും ദീപങ്ങൾ തെളിയിച്ച് പ്രജകൾ വരവേറ്റതിന്റെ സ്മരണ പുതുക്കലാണ് ദീപാവലിയെന്നതാണ് മറ്റൊരു വിശ്വാസം

വർണപ്പൊലിമയോടെ നന്മയ്യുടെദ്ദീപം തെളിയിച്ച് യു എ

അമേരിക്കയിൽ ദീപാവല്പിട്ട ആഘോഷിക്കുന്ന ഹിന്ദു സിഖ് പാഴ്സ് ജൈന മതസ്ഥർക്ക് പ്രസ്മിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശംസകൾ നേർന്നു അമേരിക്ക പിന്തുടരുന്ന മതസൌഹാർദമാണ് ഇതിലൂടെ വെളിപ്പെടുന്നതെന്ന് ശ്രീ ട്രംപ് പറഞ്ഞു

വടക്ക് പടഞ്ഞാറ് ദിശയിൽ ഒമാനിലേക്ക് നീങ്ങുകയാണ് കാറ്റ് അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ഒമാൻ തീരത്തെത്തും

ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ മഹാരാഷ്ട്ര ഗോവ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്

വെള്ളിയാഴ്ചയാണ് വീണ്ടും ഇറാഖി ജനത പ്രതിഷേധവുമായി രംഗത്തീറ്റുങ്ങിയത്

കൊലപാതകം മനുഷ്യക്കടത്തിനുള്ള ഗൂഢാലോചന കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയതെന്ന് ബ്രിട്ടീഷ് പൊലീസ് അറിയിച്ചു

സെറിബ്രൽ പാൾസി കുഷ്ഠം ഭേദമായവർ പൊക്കക്കുറവുള്ളവർ ആസിഡ് ആക്രമണ ഇരകൾ തുടങ്ങി ചലന പരിമിതിയുള്ളവർ മൂന്നാം വിഭാഗത്തിലും ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള ആദ്യത്തെ മൂന്ന് വിഭാഗങ്ങളിലുംപ്പെട്ടവരെ നാലാം വിഭാഗത്തിലുമായി തരംതിരിച്ചാണ് സംവരണം അനുവദിക്കുന്നത്

അദ്ദേഹം ചികിത്സ്ലയോട് പ്രതികരിക്കുന്നുണ്ട് ന്യൂറോളജി ന്യൂറോ സർജറി അസ്സ്തേഷ്യ വിഭാഗങ്ങളിലെ ഡോക്ടർമാർമാരാണ് ചികിത്സക്ക് നേതൃത്പം ്നൽകുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു

ബ്രഹ്മപ്ട്രത്തെ ഖരമാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകളുടെ പേരിലാണ് പിഴ അടുത്തമാസം എട്ടിന് ചേരുന്ന യോഗത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വിശദീകരണം നൽകാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഒന്നിനെതിരേ രണ്ടു ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ വിജയം

ഒന്നിനെതിരേ രണ്ട് ഗോളുകൾക്കായിരുന്നു ജയം ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ അംഗീകൃത ടൂർണമെന്റിന്റെ സെമിയിൽ പ്രവേശിക്കുന്ന ആദ്യ കേരള ടീമാണ് ഗോകുലം കേരള എഫ്സി

സെമി ഫൈനലിൽ ജപ്പാൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരങ്ങൾ മുന്നേറിയത്